കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ഹൈദരാബാദ് എഫ് സി യെ നേരിടും വാർത്തകൾ വിശദമായി അടിസ്ഥാന വികസനമേഖലക്കായി കേന്ദ്രബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ കാര്യക്ഷമമായി നടപ്പാക്കുന്നതിനെ കുറിച്ച് വെബിനാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും

അടിസ്ഥാന വികസന മേഖലയിലെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിന് ആശയങ്ങൾ അവർ പങ്കുവെയ്ക്കും മേഖലയിൽ കൂടുതൽ നിക്ഷേപം ആകർഷിക്കുന്നതും ചർച്ചാ വിഷയമാകും രുര സ്റ്റേറ്റ് ഇൻഷുറൻസ് വകുപ്പിന്റെ സേവനങ്ങൾ വിപുലീകരിക്കുന്നതിന് സാധ്യത പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു മോട്ടോർ തൊഴിലാളി മേഖലയിലെ പ്രശ്നങ്ങൾ മനസിലാക്കാനായി ഓട്ടോ തൊഴിലാളികളുമായി തിരുവനന്തപുരത്ത് ആശയവിനിമയം നടത്തുകയായിരുന്നു മുഖ്യമന്ത്രി ഓട്ടോ ഉൾപ്പെടെ വാഹനങ്ങൾക്ക് എൽ

ജി വ്യാപകമായി ലഭ്യമാക്കണമെന്ന ആവശ്യം പരിഗണിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു രുര പൊന്നാനി സമഗ്ര കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു പൊന്നാനി താലൂക്കിലെ മൂന്നര ലക്ഷത്തിലധികം ജനങ്ങൾക്ക് ശുദ്ധജലം ലഭ്യമാക്കുന്ന പദ്ധതിയാണിത് കിഫ്ബി ധനസഹായത്തോടെ നടപ്പിലാക്കിയ പദ്ധതി വഴി പ്രദേശത്തെ ജനങ്ങളുടെ ശുദ്ധജല ക്ഷാമം പൂർണമായും പരിഹരിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു

കിഫ്ബി പദ്ധതികളുടെ മേൽനോട്ടം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് മന്ത്രി തോമസ് ഐസക് പറഞ്ഞു ഭാവി ഗവൺമെന്റിന്റെ മേൽ കിഫ്ബി ബാധ്യതയാകില്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വ്യക്തമാക്കി രംഭ ഒക്സ്ഫഡ് യൂനിവേഴ്സിറ്റിയും അസ്ട്ര സെനിക്കയും ചേർന്ന് വികസിപ്പിച്ച് പൂനെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യയിൽ നിർമിച്ച കൊവിഷീൽഡ് വാക്സിന് ലോകാരോഗ്യ സംഘടന അടിയന്തര ഉപയോഗ അനുമതി നൽകി

ഇതോടെ കൊവിഷീൽഡ് വാക്സിൻ ആഗോള വ്യാപകമായി വിതരണം ചെയ്യാൻ സാധിക്കും

ശൈലജ ഇന്ന് വൈകിട്ട് നിർവഹിക്കും

സംസ്ഥാനത്ത് നല്ലനടപ്പ് നയം രൂപീകരിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചതായി മന്ത്രി കെ

സാമൂഹ്യനീതി വകുപ്പ് തയ്യാറാക്കിയ കരട് പ്രൊബേഷൻ നയത്തിനാണ് മന്ത്രിസഭ അംഗീകാരം നൽകിയത്

ഗുരുതരമല്ലാത്ത കുറ്റങ്ങൾ ചെയ്തവരെയും സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റിനിർത്തപ്പെട്ടവരെയും സമൂഹത്തിന് ഉതകുന്നവരാക്കി മാറ്റുന്ന സാമൂഹിക ചികിത്സാ സമ്പ്രദായമാണ് നല്ലനടപ്പ് ഇന്ത്യയിൽ ആദ്യമായി നല്ലനടപ്പ് നയം രൂപീകരിക്കുന്ന സംസ്ഥാനമാണ് കേരളം

പി എസ് സി ക്ക് വിടാത്ത തസ്തികകളിലേക്കാണ് നിയമനം എന്ന ബാങ്കിന്റെ വാദം കോടതി തള്ളി

രും കയർ കേരളയുടെ ഒൻപതാം പതിപ്പിന് ഇന്ന് ആലപ്പുഴ പാതിരപ്പള്ളിയിൽ തുടക്കമാകും രാവിലെ പതിനൊന്നരക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും

കയർ വ്യവസായത്തിന്റെ വിവിധ മേഖലകളുമായി ബന്ധപ്പെട്ട സമ്മേളനങ്ങളും സെമിനാറുകളും വെർച്ചൽ എക്സിബിഷനും മേളയുടെ ഭാഗമായി നടക്കും നൂറിൽപരം വിദേശ വ്യാപാരികളും ആഭ്യന്തര വ്യാപാരികളും കയർ കേരളയിൽ പങ്കെടുക്കും

എൽ ഫുട്ബോളിൽ ബംഗളുരു എഫ് സിക്ക് ജയം ഗോവയിൽ നടന്ന മത്സരത്തിൽ മുംബൈ സിറ്റി എഫ്

പരാജയത്തോടെ മുംബൈക്ക് ആദ്യസ്ഥാനം നഷ്ടമായി ബംഗളൂരു പോയിന്റ് പട്ടികയിൽ ആറാം സ്ഥാനത്തെത്തി ഇന്ന് രാത്രി ഏഴരക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് ഹൈദരാബാദ് എഫ് സിയെ നേരിടും

ക്യാപ്റ്റൻ ജോ റൂട്ടും ഡാൻ ലോറൻസുമാണ് ക്രീസിൽ

ഡി എഫ് അധികാരത്തിൽ വന്നാൽ പിൻവാതിൽ നിയമനങ്ങളെല്ലാം പുനപരിശോധിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു മൂന്ന് ലക്ഷം പേരെയാണ് പിണറായി ഗവൺമെന്റ് അനധികൃതമായി നിയമിച്ചതെന്നും എൽ

എഫ് ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ശേഷം പുതുതായി ഒരു പദ്ധതിയും കൊണ്ടു വന്നിട്ടില്ലെന്നും അദ്ദേഹം ആരോപിച്ചു ഐശ്വര്യ കേരള യാത്രയ്ക്ക് ആലപ്പുഴയിൽ നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു ചെന്നിത്തല ജില്ലയിലെ പര്യടനം ഇന്ന് സമാപിക്കും

എം സംസ്ഥാന ആക്ടിംഗ് സെക്രട്ടറി എ വിജയരാഘവൻ നയിക്കുന്ന വടക്കൻ മേഖല വികസന മുന്നേറ്റ ജാഥയുടെ കണ്ണൂർ ജില്ലയിലെ പര്യടനം ഇന്ന് അവസാനിക്കും ഇടതു മുന്നണിയിൽ നിന്ന് ഒരു കക്ഷിയെയും അടർത്തിയെടുക്കാൻ ഇന്നത്തെ കോൺഗ്രസ് നേതൃത്വത്തിന് സാധിക്കില്ലെന്ന് ജാഥയ്ക്ക് തലശ്ശേരിയിൽ നൽകിയ സ്വീകരണത്തിൽ വിജയരാഘവൻ പറഞ്ഞു രുര മീശ നോവലിന് സാഹിത്യ അക്കാദമി അവാർഡ് നൽകാൻ പിണറായി ഗവൺമെന്റ് എടുത്ത തീരുമാനം ഹിന്ദുക്കളോട് കാണിച്ച പ്രതികാര നടപടിയാണെന്ന് ബി

പിണറായി ഗവൺമെന്റിന് ഹിന്ദുക്കളോട് കലി അടങ്ങിയിട്ടില്ലെന്ന് അദ്ദേഹം തൃശൂരിൽ പറഞ്ഞു മനഃപ്പൂർവ്വം ഹിന്ദു സമൂഹത്തെ അവഗണിക്കുകയാണ് പിണറായി വിജയൻ ചെയ്തതെന്നും ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കുമെന്നും സുരേന്ദ്രൻ പറഞ്ഞു രംഭ വാളയാർ ചെക്ക് പോസ്റ്റിൽ ആധുനിക പരിശോധന സംവിധാനങ്ങൾ ഏർപ്പെടുത്തുമെന്നു മന്ത്രി എ

മോട്ടോർ വാഹന വകുപ്പിന് കീഴിലെ ചെക്ക് പോസ്റ്റ് മന്ദിരത്തിന്റെ ആധുനികവത്ക്കരണം ഉദ്ഘാടനം ചെയ്യുകയായി രുന്നു മന്ത്രി

കേരളത്തിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് ഉതകുന്നതാണ് പുരപ്പുറം സോളാർ പദ്ധതിയെന്നും ഇത് സമൂഹം ഏറ്റെടുക്കണമെന്നും മന്ത്രി പറഞ്ഞു രംഭ പൊതു വിഭാഗം ഇൻസ്റ്റിറ്റ്യൂഷണൽ റേഷൻ കാർഡ് ലഭിക്കുന്നവർക്ക് സംസ്ഥാനത്ത് എവിടെ നിന്നും റേഷൻ വാങ്ങാമെന്ന് മന്ത്രി പി തിലോത്തമൻ അറിയിച്ചു ക്ഷേമ സ്ഥാപനങ്ങൾ മഠങ്ങൾ തുടങ്ങിയ കേന്ദ്രങ്ങളിൽ കഴിയുന്ന വർക്കായി ഏർപ്പെടുത്തിയ റേഷൻ കാർഡിന്റെ വിതരണം കോട്ടയത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി രുര രാജ്യത്തെ ആദ്യ എലിഫന്റ് മ്യൂസിയമായ കോന്നി എലിഫന്റ് മ്യൂസിയം ഇന്ന് ഉച്ചകഴിഞ്ഞ് ജനങ്ങൾക്കായി തുറന്നു കൊടുക്കും മന്ത്രി കെ

ഹോർട്ടികോർപ്പിന്റെ സംസ്ഥാനത്തെ ആദ്യ സൂപ്പർമാർക്കറ്റ് കോഴിക്കോട് വേങ്ങേരി തടമ്പാട്ട് താഴത്ത് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി വയനാട് മലപ്പുറം പാലക്കാട് തൃശൂർ ജില്ലകളിൽ ഹോർട്ടികോർപ്പ് വഴിയും കോഴിക്കോട്ട് കർഷകരിൽ നിന്ന് നേരിട്ടും വേങ്ങേരി മാർക്കറ്റിലെ ലേലം വഴിയുമാണ് പച്ചക്കറി സംഭരിക്കുന്നത്

ഗീത ഗോപി എം എൽ എ അധ്യക്ഷയായിരുന്നു രും സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വനഭൂമി പട്ടയങ്ങൾ വിതരണം ചെയ്ത് തൃശൂർ ജില്ല റെക്കോർഡ് സൃഷ്ടിച്ചു

രും ഇന്ധനവില ഇന്നും വർധിച്ചു

തുടർച്ചയായ ഒൻപതാം ദിവസമാണ് ഇന്ധനവില വർധിക്കുന്നത് രും കേന്ദ്ര സംസ്ഥാന ഗവണ്മെന്റുകൾ ഇന്ധനവിലയിൽ ചുമത്തുന്ന അമിത നികുതി കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ട് കെപിസിസി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ നേതൃത്വത്തിൽ രാവിലെ രാജ്ഭവന് മുന്നിൽ സത്യാഗ്രഹം നടത്തും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്യും കെപിസിസി ഭാരവാഹികൾ എംപിമാർ എംഎൽഎമാർ തുടങ്ങിയവർ പങ്കെടുക്കും ജില്ലാതലത്തിലും ഡിസിസികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കും

മന്ത്രിമാരായ ജി സുധാകരൻ ഇ പി ജയരാജൻ എന്നിവർ പങ്കെടുത്തു രുര തീരസംരക്ഷണത്തിന് ആവിഷ്കരിച്ച ഓഫ് ഷോർ ബ്രേക്ക് വാർട്ടർ പദ്ധതിയുടെ നിർമാണം ഇന്ന് തുടങ്ങും പൂന്തുറയിൽ വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിക്കും